ഹൈക്കോടതി നിയോഗിച്ച ശുബരിമല നിരീക്ഷക സമിതി ഇന്ന് സന്നിധാനം സന്ദർശിക്കും സംസ്ഥാനത്തുണ്ടായ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പണം ആവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിന് ബില്ല് നൽകിയി ട്ടില്ലെന്ന് നാവികസേന കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വലിയ വിമാനങ്ങളുടെ സർവ്വീസ് നാളെ പുനരാരംഭിക്കും മികച്ച ഫുട്ബോൾ താരത്തിന് നൽകുന്ന ബാലൺദ്യോർ പുര സ്കാരം ലൂക്കാ മോഡ്രിച്ചിന് ഐഎസ്എൽ ഫുട്ബോളിൽ കൊച്ചിയിൽ ഇന്ന് കേരളാ ബ്ലാസ്റ്റേഴ്സ് ജംഷധ്പൂർ എഫ്സിയെ നേരിടും ൾ ൽ ൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരിഗണന യിലിരിക്കുന്ന എല്ലാ ഹർജികളും സുപ്രീം കോടതിയിലേക്ക് മാറ്റണ മെന്നാവശൃപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീംകോടതിയിൽ ഹർജി നൽകി ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പരിഗ ണിക്കുന്ന എല്ലാ ഹർജികളിലേയും നടപടി സ്റ്റേ ചെയ്യണമെന്നും ഗവൺമെന്റ് ആവശ്യപ്പെട്ടു

ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നത് വലത് തീവ്ര സംഘടനകൾ തടസ്സപ്പെടുത്തുക യാണെന്നും ഹർജിയിൽ പറയുന്നു സൂപ്രീം കോടതി വിധി നടപ്പാ ക്കാൻ ഗവൺമെന്റിന് ഭരണഘടനാപരമായി ബാധ്യതിയുണ്ട്

ഹൈക്കോടതി നിയോഗിച്ച ശബരിമല നിരീക്ഷക സമിതി ക്രമീ കരണങ്ങൾ വിലയിരുത്താൻ ഇന്ന് സന്നിധാനം സന്ദർശിക്കും ഇന്നലെ നിലക്കലിലും പമ്പയിലും സന്ദർശനം നടത്തിയ സമിതി സൌകരൃങ്ങളിൽ തൃപ്തി അറിയിച്ചു ജസ്റ്റിസുമാരായ പി

രാമൻ എസ്

ഹേമചന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട സമി തിയാണ് ഉച്ചയോടെ നിലക്കലിലെത്തി അടിസ്ഥാന സൌകര്യങ്ങൾ നേരിട്ട് വിലയിരുത്തിയത് പുതുതായി നിർമ്മിച്ച വിരിവെക്കാനുള്ള ഷെഡും കുടിവെള്ള പ്ലാന്റും പ്രാഥമികാരോഗൃ കേന്ദ്രവും ഉൾപ്പെടെ സ്ഥലങ്ങൾ സമിതി സന്ദർശിച്ചു തുടർന്ന് സമിതി പമ്പയിലും സന്ദർശനം നടത്തി ശബരിമലയിൽ വൻ തീർത്ഥാടനത്തിരക്ക് ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ തിരക്കായിരുന്നു ഇന്നലെ

ശബരിമല വിഷയത്തിൽ ഗവൺമെന്റ് നിലപാടിൽ പ്രതിഷേധിച്ച് നിയമസഭാ കവാടത്തിന് മുന്നിൽ പ്രതിപക്ഷ എംഎൽഎ മാരുടെ സത്യഗ്രഹം തുടരുന്നു

ശിവകുമാർ എം ജയരാജ് പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് ഇന്നലെ രാവിലെ സത്യഗ്രഹം ആരംഭിച്ച ത് രാത്രി സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ എംഎൽഎ മാരെ സന്ദർശി ച്ചു ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ

രാധാകൃഷ്ണൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല് നിരാഹാര സമരം രണ്ടാം ദിവസത്തേക്ക് കടന്നു ശബരിമലയിലെ നിരോധനാ ജ്ഞയും നിയന്ത്രണങ്ങളും പിൻവലിക്കുക അയ്യപ്പ ഭക്തർക്ക് അടി സ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക കെ സുരേന്ദ്രനെതിരായ കള്ള ക്കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ശബരിമല പ്രക്ഷോഭത്തിന് ആളെ കിട്ടാത്തതു കൊണ്ടാണ് ബിജെപി സമരം ശബരിമലയിൽ നിന്നും മാറ്റിയതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു മന്ത്രി മാരെ തെരുവിൽ തടയുന്നത് കലാപമുണ്ടാക്കാനാണെന്നും ഇതിനെ തിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറ ഞ്ഞു കണ്ണൂരിലെ മാലൂരിനടുത്ത് തോലമ്പ്രയിൽ സിപിഐഎം സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശബരിമല സന്നിധാനം മുതൽ ഇലവുങ്കൽ വരെ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ഇന്നവസാനിക്കും നിരോധനാജ്ഞ വീണ്ടും തുട രുന്ന കാര്യത്തിൽ പത്തനംതിട്ട ജില്ലാ കലക്ടർ തീരുമാനം എടു ക്കും പൊലീസ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാ നത്തിലായിരിക്കും തീരുമാനം കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനെന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വനിതാ മതിലിന്റെ ആലോചനാ യോഗ ത്തിൽ ഹിന്ദുസംഘടനകളെ മാത്രം വിളിച്ചത് സംഘ്പരിവാറിന്റെ അജ ണ്ടയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി

മുഖ്യമന്ത്രിയുടെ നടപടി നവോത്ഥാനത്തെ തള്ളിപ്പറയുന്നതിന് തുല്ല്യമാണെന്നും ചെന്നിത്തല പറഞ്ഞു ഇന്ത്യയിലെ നവോത്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന ഫലമായിരുന്നു വെന്നും കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയത് കോൺഗ്രസാണെന്നും ചെന്നിത്തല പറഞ്ഞു സംസ്ഥാനത്ത് ഓഗസ്റ്റിൽ ഉണ്ടായ പ്രളയത്തിൽ നാവിക സേന നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് പണം ആവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിന് ബില്ല് നൽകിയിട്ടില്ലെന്നും വാർത്ത അടിസ്ഥാന രഹി തമാണെന്നും ദക്ഷിണ നാവിക സേനാ മേധാവി ഫ്ളാഗ് ഓഫീസർ കമാന്റിങ്ങ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ അനിൽ കുമാർ ചാവ്ള വ്യക്തമാക്കി നാവിക സേനയുടെ നിയമം അനുസരിച്ച് ഇത്തരം ചിലവുകൾ നാവികസേന തന്നെയാണ് വഹിക്കാറെന്ന് അദ്ദേഹം പറഞ്ഞു

കരിപ്പൂർ വിമാനത്താവളത്തിൽനിന്ന് വലിയ വിമാനങ്ങളൂടെ സർവീസ് നാളെ പുനരാരംഭിക്കും സൌദി എയർലൈൻസിന് മാത്രമാണ് നിലവിൽ കരിപ്പൂരിൽ നിന്ന് വലിയ വിമാനങ്ങളുടെ സർവീസിന് അനുമതി നൽകിയത്

മറ്റ് വിദേശ വിമാനക്കമ്പനികൾ നേരത്തെ പലതവണ അനുമതി നേടിയിരുന്നെങ്കിലും ഇപ്പോൾ പിന്മാറുകയാണ് തൃശൂരിലെ സ്ഥകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി സ്വദേശിക്ക് കോംഗോ പനി സ്ഥിരീകരിച്ചെങ്കിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതി ല്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ

രോഗം പൂർണമായും ഭേദമായതിനെ തുടർന്നാണ് നാട്ടിലേക്ക് നെടുമ്പാശേരി വിമാനത്താവളംവ്ഴി തിരിച്ചത്

ചികിത്സയിൽ കാര്യമായ പുരോഗതിയു ണ്ടെന്നും ആരോഗ്യവകുപ്പ് നിരീക്ഷിച്ചു വരുന്നതായും ഡിഎംഒ പറഞ്ഞു മികച്ച ഫുട്ബോൾ താരത്തിന് നൽകുന്ന ബാലൺദ്യോർ പുര സ്കാരത്തിന് ക്രൊയേഷ്യൻ താരം ലൂക്കാ മോഡ്രിച്ച് അർഹനായി രണ്ട് തവണ ഈ പുരസ്കാരം നേടിയ പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അർജന്റീനയുടെ ലയണൽ മെസ്റ്റി ഫ്രഞ്ച് താരങ്ങ ളായ അന്റോണിയോ ഗ്രീസ്മാൻ കൈലൻ എംബാപ്പ എന്നിവരെ മറികടന്നാണ് മോഡ്രിച്ച് മികച്ച താരമായത്

ഫ്രഞ്ച് ഫുട്ബോൾ വാരികയായ ഫ്രാൻസ് ഫുട്ബോളാണ് സ്വർണപ്പന്ത് എന്ന് അർത്ഥം വരുന്ന ബാലൺദ്യോർ നൽകുന്നത്

സ്പെയിനും ഫ്രാൻസും തമ്മിൽ നടന്ന മത്സരം ഓരോ ഗോൾ അടിച്ച് സമനിലയിൽ പിരിഞ്ഞു ഏഴിമല നാവിക അക്കാദമിയിൽ അഡ്മിറൽ കപ്പിനായുള്ള പായ്വഞ്ചി ഓട്ടമത്സരത്തിൽ ആദ്യറൌണ്ട് പൂർത്തിയായപ്പോൾ അമേ രിക്ക മുന്നിലെത്തി

ഹരിയാനയിലെ അംബാ ലയിൽ നടന്ന മത്സരത്തിൽ കേരളം ബംഗാളിനെ എട്ടു വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത് രഞ്ജി ട്രോഫി മാതൃകയിൽ ആദ്യമായാണ് കാഴ്ച്ചപരിമി തർക്കായി അന്തർസംസ്ഥാന ക്രിക്കറ്റ് ടൂർണ്ണമെന്റ് സംഘടിപ്പിക്കു ന്നത്

മധ്യപ്രദേശ് തെലങ്കാന ഉത്തരാ ഖണ്ഡ് എന്നീ ടീമുകളാണ് എതിരാളികൾ

വ്യാഴാഴ്ച്ച രജിസ്ട്രേഷൻ തുടങ്ങും

മേളയുടെ ഭാഗമായി ഇന്നലെ ആലപ്പുഴ ബീച്ചിൽ ബാലചിത്ര രചന സംഘടിപ്പിച്ചു നവകേരള സൃഷ്ടിക്ക് കരുത്തുപകരുന്നതാകും ഇത്തവണത്തെ രാജ്യാന്തര ചലച്ചിത്ര മേളയെന്ന് മന്ത്രി എ

അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ്സ് വിതരണം തിരു വനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉള്ളടക്കത്തിൽ വിട്ടുവീഴ്ച്ച ചെയ്യാതെ ലളിതമായ രീതിയിലാണ് ഇത്തവണ മേള സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു ലാളിതൃം നടത്തിപ്പിൽ മാത്രമാണെന്നും പ്രൌഢമായ ചലച്ചിത്രങ്ങളാണ് മേള യുടെ ആകർഷണമെന്നും മന്ത്രി പറഞ്ഞു സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ മുമ്പാകെ എത്തുന്ന പരാതികളുടെ എണ്ണം ഏറുന്നു

പ്രണയബന്ധത്തിൽ നിന്നും പിൻമാറുമ്പോൾ ശാരീരികമായി ആക്രമിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതിൽ കമ്മീഷൻ അംഗ ങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന്റെ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഗവൺമെന്റിന്റെ വിശദീകരണം തേടി

അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ഹർജിയിൽ പറയുന്നു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയുടെ താണാവ് മുതൽ നാട്ടുക്കൽ വരെ നവീകരണ പ്രവൃത്തി ഏപ്രിൽ മാസത്തോടെ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയർ പാലക്കാട് മണ്ണാർക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ അറിയിച്ചു

പാലക്കാട് ജില്ലയിലെ പത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ബാരിയർ ഫ്രീ കേരള ടൂറിസം പദ്ധതിക്ക് തുടക്കമായി